പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അൽപ്പസമ യത്തിനകം പൊതുജനാരോഗ്യരംഗത്ത് സ്വകാര്യ മേഖല മികച്ച സംഭാവന നൽകിവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തർ സംസ്ഥാന നദീജല കരാർ തർക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച തിരുവനന്തപുരത്ത് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിതല യോഗം ചേരും

ഭീകര പ്രവർത്തനങ്ങൾക്കും അതിന് പിന്തുണ നൽകുന്നവർക്കുമെ തിരായ നിർണായക പോരാട്ടത്തിന് സമയമായെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി

അമേ രിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ ഹൂസ്റ്റ ണിൽ സംഘടിപ്പിച്ച ഹൌഡി മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി അമേരിക്കയിലും ഇന്ത്യയിലും ഉണ്ടായ ഭീകരാക്രമണങ്ങൾ ഒരേ രാജ്യത്തിന്റെ പിന്തുണ യോടെ ഉണ്ടായതാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കും അതിർത്തി യിലെ സുരക്ഷ സുപ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും സുരക്ഷാ രംഗത്തെ സഹകരണം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ടെന്ന് ട്രംപ് അഭി പ്രായപ്പെട്ടു നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിഷ്കരണ ങ്ങളെ അദ്ദേഹം പിന്തുണച്ചു ഹൈഡി മോദി ചടങ്ങിൽ ഒരു മണിക്കൂറി ലേറെ ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തു

ഇന്തൃയിൽ അടുത്തമാസം നടക്കുന്ന എൻ ബി

ബാസ്കറ്റ്ബോൾ മത്സരം കാണാൻ മുംബൈയിൽ എത്തി യേക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ ട്രംപ്പ് സൂചിപ്പിച്ചു പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് വിധിയെഴുത്ത് വോട്ടെടുപ്പ് അൽപ്പസമയത്തിനകം തുടങ്ങും പോളിങ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ടനിര ഇപ്പോൾതന്നെയുണ്ട് ആറ് മണിയോടെ തിര ഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും തിരഞ്ഞെടുപ്പ് ഏജന്റുമാരുടെയും സാന്നിധൃത്തിൽ മോക് പ്പോൾ നടന്നു

അഞ്ച് മാതൃകാ പോളിങ് ബൂത്തുകളും സ്ത്രീകൾമാത്രം നിയന്ത്രിക്കുന്ന പിങ്ക് ബൂത്തും സജ്ജീകരിച്ച് കഴിഞ്ഞു എം ദ തലമുറ വോട്ടിങ് യന്ത്രത്തിൽ ഫോട്ടോ പതിച്ച ബാലറ്റ് പേപ്പറാണ് ഉപയോഗി ക്കുന്നത്

ഡി എഫിന്റെ ജോസ് ടോം പുലിക്കുന്നേൽ എൽ

എഫിന്റെ മാണി സി

എ യുടെ എൻ

വൈകിട്ട് ആറ് വരെയായിരിക്കും വോട്ടെടുപ്പ്

മാണി തുടർച്ചയായി വിജയിച്ച പാലായിൽ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയകേരളം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് രണ്ടാ ഴ്ചത്തെ വീറും വാശിയുംനിറഞ്ഞ പ്രചാരണം ശനിയാഴ്ച അവസാനി പ്പിച്ചിരുന്നു

കോലഞ്ചേരിയിൽ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം ഗവൺമെന്റ് സ്വകാര്യമേഖലകൾ കൈകോർത്ത് പ്രവർത്തിച്ചാൽ ആരോഗ്യമേഖലയിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാവു മെന്ന് ചടങ്ങിൽ മന്ത്രി കെ

മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഗുരുവായൂരിൽ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് തറക്കല്ലിടും തുടർന്ന് വലപ്പാട് കുഞ്ഞുണ്ണിമാസ്റ്റർ സ്മാരകം നാടിന് സമർപ്പിക്കും

ഉച്ചകഴിഞ്ഞ് കണ്ണാറ ബനാന ആൻഡ് ഹണി പാർക്കും മൂഖ്യമന്ത്രി തുറന്നുകൊടുക്കും വൈകിട്ട് പെരിങ്ങണ്ടൂരിലെ പോപ്പ്പോൾ മേഴ്സിഹോം ഗവേഷണ കേന്ദ്രവും പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങുകളിൽ മന്ത്രി മാരും ജനപ്രതിനിധികളും പങ്കെടുക്കും

ബീഹാറിലെ സമസ്തിപൂർ ലോക്സഭാ സീറ്റിലും അന്ന് ഉപതിരഞ്ഞെടുപ്പ് നടത്തും

വിവിധ സംസ്ഥാനങ്ങളിലെ ദുരന്താനന്തര സാഹചര്യങ്ങൾ വിലയി രുത്താൻ ന്യൂഡൽഹിയിൽ ഇന്ന് ഏകദിന ശിൽപ്പശാല സംഘടിപ്പിക്കും ദുരന്തങ്ങൾ നേരിടാൻ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ആഭ്യ ന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേരുന്നയോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് മുഖ്യാതിഥിയായിരിക്കും

പറമ്പിക്കുളം ആളിയാർ ആനമല പാണ്ടിയാർ പുന്നപ്പുഴ പമ്പ അച്ചൻകോവിൽ എന്നിവയടക്കം വിവിധ പദ്ധതികളിലെ പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറി യിച്ചു

ഇരുപക്ഷത്തെയും മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപകൻ പി

വെങ്കയ്യ നായിഡു ഉദ്ഘാ ടനം ചെയ്യും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്നും നാളെയും കോഴിക്കോട് പാലക്കാട് കോഴിക്കോട്ട് തൃശൂർ പാതകളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും

മറ്റ് വാഹനങ്ങൾക്കും നിയന്ത്രണം ഉണ്ടാകും സുപ്രീംകോടതി വിധിവന്ന് രണ്ട് വർഷത്തിനുശേഷം ആദ്യമായി ഇന്നലെ കൊച്ചി കണ്ടനാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ മലങ്കര സിറി യൻ ഓർത്തഡോക്സ് വിഭാഗം ആരാധന നടത്തി

കനത്ത പോലീസ് സന്നാഹം പള്ളിയിലും പരിസര പ്രദേശങ്ങ ളിലും ഏർപ്പെടുത്തിയിരുന്നു മരട് ഫ്ളാറ്റ് വിഷയം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഫ്ളാറ്റു കൾ പൊളിക്കണമെന്ന ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകേണ്ടിവരുമെന്ന് കോടതി നേരത്തെ അറിയിച്ചിരുന്നു ഉത്തരവ് നടപ്പാക്കിവരികയാണെന്ന് ചീഫ് സെക്രട്ടറി കോടതിയെ അറി യിച്ചിട്ടുണ്ട്

ഇതോടെ പരമ്പര സമനിലയിലായി ആദൃകളി മഴമൂലം ഉപേക്ഷിച്ചി രുന്നു രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു

ലോക ചാമ്പ്യൻഷിപ്പിൽ ഇതോടെ ഇന്ത്യയ്ക്ക് അഞ്ച് മെഡലുകളായി വ്യാഴാഴ്ച ആരംഭിക്കുന്ന ദേശീയ ക്ലാസിക് പവർലിഫ്റ്റിങ് ചാമ്പ്യൻഷിപ്പിന് ഇടുക്കി മുരിക്കാശ്ശേരി ഒരുങ്ങി

എണ്ണൂറിലേറെ കായിക താരങ്ങൾ പങ്കെടുക്കും മത്സരവേ ദിയായ പാവനാത്മ കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയം രാവിലെ മന്ത്രി എം

മണി ഉദ്ഘാടനം ചെയ്യും കണ്ണൂരിൽ ഒൻപതാമത് സംസ്ഥാന് മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജേതാക്കളായി

നാലാം ബറ്റാലിയൻ കമാണ്ടൻറ് എ ശ്രീനിവാസ് ട്രോഫികൾ സമ്മാനിച്ചു കണ്ണൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മാങ്ങാട്ട് പറമ്പിൽ തുടങ്ങി അറുനൂറോളം കായികതാരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കാരങ്ങൾ നിലനിർത്താൻ സാംസ്കാ രിക പ്രവർത്തകർ ഒപ്പം നിൽക്കണമെന്ന് മന്ത്രി ടി

അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കാല ത്തേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്ന് മന്ത്രി പറ ഞ്ഞു കോഴിക്കോട്ട് കടത്തനാട് ഉദയവർമ്മരാജ പുരസ്കാരം കെ

കുറുപ്പിനും ഇ

ഹാഷിമിനും ആർ ഉണ്ണിമാധവനും സമ്മാനി ക്കുകയായിരുന്നു മന്ത്രി കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേ ളനം കോഴിക്കോട്ട് രാവിലെ മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്യും

വൈകിട്ട് മരുതോങ്കരയിലും മേപ്പയൂരും കുടുംബാ രോഗൃകേന്ദ്രം ഉദ്ഘാടനച്ചടങ്ങിലും മന്ത്രി പങ്കെടുക്കും ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ജൈക്കമിഷൻ സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും പെരുവണ്ണാമുഴി ശുദ്ധീ കരണജോലിയും പൈപ്പിടൽ ജോലി നടക്കുന്ന സ്ഥലങ്ങളും സംഘം സന്ദർശിക്കും നാളെ തിരുവനന്തപുരം അരുവിക്കരയിലും സംഘം സന്ദർശനം നടത്തും കൊച്ചിയിൽ നഗ്നദൃശ്യങ്ങൾ പകർത്തി വിദേശ വ്യവസായിയുടെ പണം തട്ടിയ യുവതി ഉൾപ്പെട്ട നാലംഗസംഘത്തെ പോലീസ് പിടികൂടി

കണ്ണൂർ സ്വദേ ശികളാണ് യുവാക്കൾ മൂന്നുപേരുമെന്ന് പോലീസ് പറഞ്ഞു ഹരിത ടൂറിസത്തിന് വാഗമണ്ണിൽ വിപുലമായ പദ്ധതി നടപ്പാക്കു ന്നു പദ്ധതി പ്രവർത്തനങ്ങളും രൂപരേഖയും അംഗീകരിക്കാൻ രാവിലെ ജില്ലാതല സമിതി യോഗം ചേരും കനത്ത മഴയെത്തുടർന്ന് തടസ്സപ്പെട്ട മെഗാ ശുചീകരണ പരിപാടി നടപ്പാക്കൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ ഇടനാഴികൾ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണ് അഷ്ടമുടിക്കായലിലെ മത്സൃസമ്പത്ത് നിലനിർത്താനും കക്കാസ മൃദ്ധി ഉറപ്പാക്കാനും കണ്ടൽവ്യാപനം സാധ്യമാക്കാനും പ്രത്യേക പദ്ധ തികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു നീണ്ടകര ഫിഷറീസ് അവബോധ കേന്ദ്രത്തിൽ വിളിച്ച യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അഖിലകേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രോതാക്കളുടെ എട്ടാമത് സുഹൃത് സംഗമം മഞ്ചേരിയിൽ കെ

റേഡിയോ അവതാരകരും സംഘടനാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെ ടുത്തു